എന്നിവയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സഹകരണം ശക്തമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്ചലായി പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം

പശ്ചാത്തലത്തിൽ ഇത് വീഹിക്കുന്ന കണ്ടെയ്നറുകൾക്കും ടാങ്കറുകൾക്കും ദ്യേശ്രീയി പാതകളിൽ ടോൾ ഈടാക്കുന്നത് ഒഴിവാക്കി

രോഗികൾ രാജ്യത്ത് നാല് ലക്ഷത്തിലധികം പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു

വോയിസ് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കലിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പോർച്ചുഗലിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ സംവിധാനങ്ങൾ എന്നനിലയിൽ സുരക്ഷ സുസ്ഥിര വികസനം എന്നിവയിലൂന്നിയ വളർച്ചയിൽ ഇരുവിഭാഗവും പ്രതിബദ്ധത അറിയിച്ചു ഇന്ത്യയിലും യൂറോപ്പിലും ലോകത്തിന്റെ പിവിധ ഭാഗങ്ങളിലും കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധിയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു കോവിഡ് വാക്സിനുകളുടെ സൂരക്ഷിതവും സാർവത്രികവും തുല്യവുമായ വിതരണത്തെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പിന്തുണയ്ക്കുന്നതായി നേതാക്കൾ വ്യക്തമാക്കി

സ്വാതന്ത്രവും നിയമാധിഷ്ഠിതവുമായ ഇന്തോ പസഫിക് മേഖലയുടെ പ്രാധാന്യത്തെ സമ്മേളനം അടിവരയിട്ടു

സമ്മേളനത്തോട് അനുബന്ധിച്ച് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര വട്ടമേശ സമ്മേളനവും നടന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിക്ഷേപകരെ സംരക്ഷിക്കുന്ന കരാറിൽ എത്തിച്ചേരുകയാണ് ലക്ഷ്യം

കോവിഡ് പ്രതിസന്ധിയെ നേരിടാൻ സർക്കാർ സ്വകാര്യ മേഖലകൾ നടത്തുന്ന ഉദ്യമങ്ങൾക്ക് പിന്തുണ നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അതോറിറ്റി ൽറിയിച്ചു

കോവിഡ് രോഗികൾ മരുന്ന് കഴിക്കുമ്പോൾ വൈറസ് ബാധിച്ചു കോശങ്ങളിൽ എത്തുകയും വൈറസിന്റെ വളർച്ചു തടയുന്നതായുമാണ് കണ്ടെത്തിയത് ഡിആർഡിഒ ഐ എൻ എം എ എസ് റെഡ്സി ലബോറട്ടറീസ് എന്നിവയുമായി സഹകരിച്ചാണ് മരുന്ന് വികസിപ്പിച്ചിരിക്കുന്നത്

വിവിധയിടങ്ങളിൽ നടത്തിയ ക്സിനിക്കൽ പരീക്ഷണങ്ങളിൽ ഈ മരുന്നുകളുടെ ഫലപ്രാപ്തി തെളിഞ്ഞിട്ടുള്ളതാണെന്ന് ആയുഷ് മന്ത്രാലയം വ്യക്തമാക്കി ആവശൃക്കാർക്ക് ഇവ കൃത്യമായി എത്തിച്ച് നൽകാൻ ഉള്ള പ്രചാരണത്തിന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് തുടക്കമിട്ടത്

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സഭാ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ലക്ഷ്യമിട്ടാണ് യോഗം കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ബിജെപി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് എന്നിവർ ചടങ്ങിൽ നിരീക്ഷകരായി പങ്കെടുക്കും നിലവിലെ മുഖൃമന്ത്രി സർബാനന്ദ സൊനോവാൾ മുതിർന്ന നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരിൽ ഒരാൾക്കാകും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക എന്നാണ് സൂചന

ഇന്നലെ ഉച്ചുയോടെ നഗരത്തിലെ സയ്യിദ് ഉൽ ഷുഹദ ഹൈസ്ക്കൂളിന് സമീപം മൂന്ന് തുടർച്ചയായ സ്ഫോടനമെങ്കിലും നടന്നിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രാലയം സ്ഥിരീകരിച്ചു

എല്ലാവർഷവും മേയ് മാസ്ത്രിലെ രണ്ടാം ഞായറാഴ്ച്ചയാണ് മാതൃദിനമായി ആഘോഷിക്കുന്നത്

ഓസ്ട്രേലിയയുടെ ലോക ഒന്നാം മ്പർ താരം അഷ്ലി ബാർട്ടിയെയാണ് സബലങ്ക അട്ടിമറിച്ചത്

താരം വീട്ടു നിരീക്ഷണത്തിലാണ്